മൂന്ന് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഭീകരരുടെ വെടിയേറ്റ് ഗ്രാമത്തലവൻ കൊല്ലപ്പെട്ട സംഭവത്തെ ലഫ്റ്റനന്റ് ഗവർണർ അപലപിച്ചു

പ്രദേശത്ത് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് സംയുക്ത സേന നടത്തിയ തെരച്ചിലിനിടെയായിരുന്നു അക്രമം

എഫ് അംഗങ്ങളും ഉൾപ്പെട്ട സേനയ്ക്കുനേരെ തീവ്രവാദി സംഘം വെടിയുതിർക്കുകയായിരുന്നു

പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുകയാണ് ഈ ആഴ്ച ഇത് മൂന്നാം തവണയാണ് ഷോപ്പിയാനിൽ തീവ്രവാദികൾ സുരക്ഷാസ്സ്നുയ്ക്കുനേരെ ആക്രമണം നടത്തുന്നത്

തീവ്രവാദികളുടേത് ഭീരുത്കു നിറഞ്ഞ നടപടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനപ്രതിനിധികൾക്ക് നേരെ നടക്കുന്ന ആക്രമണം ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും ശ്രീ

ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലാണ് ഗ്രാമത്തലവൻ അജയ് പണ്ഡിറ്റ് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത്

അദ്ദേഹത്തിന്റെ സംസ്ക്കാരം ഇന്നലെ രാത്രിയോടെ ജമ്മുവിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു

രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തി കൂടുതൽ വിവരങ്ങളുമായി പ്രിയ രാജൻ

ക്ോവ്വിഡ് നിയന്ത്രണ നടപടികളിൽ ഒരുതരത്തിലമുള്ള അലംഭാവത്തിന്റ് ഇടയുണ്ടാക്കരുതെന്നും ശ്രീ

കോവിഡ് പോരാട്ടത്തിന്റെ ഭാഗമായി ഐ സി എം ആർ കാര്യക്ഷമമായി പ്രവർത്തിച്ച് വരുന്നതായും അദ്ദേഹം പറഞ്ഞു

പരിശോധന സംവിധാനം മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് ഐ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അൻപഴകൻ എം

എ അന്തരിച്ചു

തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ ജനപ്പ്രതിനിധിയാണ് അൻപഴകൻ

എല്ലാ കുട്ടികളും പത്താം തരം പാസ്സായതായി കണക്കാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന കേന്ദ്രഭരണ്ണ് പ്രിദ്ദേശങ്ങളെ സഹായിക്കുകയാണ് ലക്ഷ്യം മഹാരാഷ്ട്രിട്ട് തെലങ്കാന തമിഴ്നാട് രാജസ്ഥാൻ അസം ഹരിയാന ഗൂജ്റാത്ത് കർണാടക ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഡൽഹി ബിഹാർ ഉത്തർപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലേക്കാണ് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചത്

ഇത്തരം സംരംഭങ്ങൾക്ക് അടിയന്തിര വായ്പാസഹായം ലഭ്യമാക്കുന്നതിൽ പൊതുമേഖലാ ബാങ്കുകൾ കൈവരിച്ച പുരോഗതി വിലയിരുത്തുകയായിരുന്നു മന്ത്രി

സുക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് മാത്രമല്ല അർഹതയുള്ള എല്ലാ കമ്പനികൾക്കും വായ്പ ലഭ്യമാക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു

രണ്ടാം മോദി ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികത്തോട് അനുബന്ധിച്ച് ബഹിരാകാശമേഖലയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊറോണ വ്യാപനത്തെ തുടർന്നാണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുടങ്ങിയത് ഗഗൻയാനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട യാത്രികർക്കുള്ള പരിശീലനം റഷ്യയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു

അധ്യാപകരിൽ നിന്നും രക്ഷാകർത്താക്ക്ളിൽ നിന്നും ലഭിച്ച അഭ്യർത്ഥനയുടെ പശ്ചാത്തലത്തിലൂണിത്

എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിലൂടെ മാത്രമേ ബുക്കിംഗ് അനുവദിക്കൂ

അഞ്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലണ്ടനിൽ നിന്നുമുള്ള വിമാനങ്ങളാണ് ഇവ മസ്ക്കറ്റ് ദോഹ എന്നിവിടങ്ങളിൽ നിന്നും കോഴിക്കോട്ടും കണ്ണൂരിൽ ദമാമിൽ നിന്നും ഇന്ന് രാത്രി വിമാനങ്ങൾ എത്തും

ഡൽഹിയിൽ പുത്രൻ അൽഫോൺസിന്റെ കൂടെയായിരുന്ന ബ്രിജിത് ജോസഫ് ന്യുമോണിയ ബാധയെ തുടർന്ന് എയിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു